ജമ്മു വിദ്യേഷവും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഒരിക്കലും വിജയം കാണില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സന്നദ്ധ സംഘനകിളും നിർവ്വഹിക്കുന്ന സേവന ങ്ങൾക്ക് മൻ ക്ട്രീ ബാത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രശംസ

ഡി

എൽ

കേസിൽ ജമ്മുകാശ്മീരിലെ ബാരമുള്ള ജില്ലയിൽ എൻ

കപ്പ് ലോകചാമ്പ്യൻ ഷിപ്പിൽ ആറ് തവണ ലോക ചാമ്പ്യനായ എം സി

സംസ്ഥാനത്ത് നടപ്പാക്കി കൊണ്ടിരിക്കുന്ന ബാക് ടു വില്ലേജ് പരിപാടി ഏറെ ഗുണകരമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു വികസന പ്രവർത്തനങ്ങൾക്ക് ബുള്ളറ്റുകൾ ബോംബുകൾ എന്നിവയെക്കാളും ശക്തിയുണ്ടെന്ന് ബാക് ടു വില്ലേജ് പരിപാടി തെളിയിച്ചു മൻ കീ ബാത്ത് പരിപാടിയിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ദേശീയതലത്തിൽ മുഖ്യനിരയിലേക്ക് വരാൻ കാശ്മീരിലെ ജനങ്ങൾ തയ്യാറാണെന്ന് ബാക് ടു വില്ലേജ് പരിപാടി തെളിയിക്കുന്നു

ഭൌമാകാശ മേഖലയെക്കുറിച്ചുള്ള പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി യുവ വിദ്യാർത്ഥികളെ ക്ഷണിച്ചു

ജല സംരക്ഷണത്തിന്റെ പ്രധാന്യത്തെക്കുറിച്ച് കഴിഞ്ഞ തവണത്തെ മൻ കീ ബാതിൽ നടത്തിയ പരാമർശങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി പ്രറഞ്ഞു

രാജ്യത്ത് ജലസംരക്ഷണത്തിനായ് നൂതന ആശയങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി അരുൺ കെ

ജലസംരക്ഷണ വിഷയത്തിൽ വിദഗ്ധരുടെ നല്ല ശ്രമങ്ങൾ പരമ്പരാഗത രീതികളെ കുറിച്ച് അറിവ് പകരുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ സംഘടിപ്പിക്കുന്ന ജനമുന്നേറ്റ പരിപാടികളുടെ മികവ് തന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

റാഞ്ചിയിൽ നിന്നും അല്പം അകലെയുള്ള ആരാംകേരം എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ ജലസംരക്ഷണത്തിന് വേണ്ടി സ്വീകരിച്ച മാർഗ്ഗങ്ങൾ അനുകരണീയമാണെന്നും ശ്രീ

വിവിധ മാർഗ്ഗങ്ങളിലൂടെ സംഭരിക്കുന്ന ജലം ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗ്ലിക്കുന്ന കാര്യത്തിൽ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ വിജയം ഒക്ട്പ്പിച്ചു

ഉത്സവങ്ങളിൽ സമൂഹത്തിലെ എല്ലാ ഷിഭാഗ്ം ജനങ്ങളും എത്തുമെന്നതിനാൽ ജലസംരക്ഷണത്തിന്റെ പ്സ്ന്ദേശം ഇത്തരം അവസരങ്ങളിലൂടെ വിനിമയം ചെയ്യാവുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ്ഡസ്ക് ആകാശവാണി

എ മാരെ സ്പീക്കർ കെ

എ മാരും മൂന്ന് ജെ ഡി

എ

വ്യാഴാഴ്ച മൂന്ന് എം എൽ എ

ഇതോടെ അയോഗ്യരാക്കിയ എം എൽ എ

ജെ

എൽ എ

കഴിഞ്ഞ വിശ്വാസ വോട്ടെടുപ്പിൽ വിട്ടുനിന്ന ബി

എൽ

യന്ത്രവൽകൃത ബോട്ടിൽ തമിഴ്നാട്ടിൽ നിന്നും പുറപ്പെട്ട ഇവർ സമൂദ്രാതിർത്തി ലംഘിക്കുകയായിരുന്നു ബോട്ടിന്റെ യന്ത്ര തകരാറുമൂലം ശ്രീലങ്കൻ മേഖലയിൽ അകപ്പെട്ട ഇവരെ നാവികസേന അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ അന്വേഷണത്തിനായി മന്നാരിലേക്കും കൊണ്ടുപോവുകയും ചെയ്തു

ഇൌ പദ്ധതി അനുസരിച്ച് എൻ

നാല് കച്ചവടക്കാരുടെ താമസ്ഥലമുൾപ്പെടെ കൃപ്പിപ്പിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ എൻ് ഐ എ സംഘത്തോടൊപ്പം പൊലീസും സി

ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് സന്ദർശനം കേന്ദ്രമന്ത്രി പ്രതാപചന്ദ്ര സാരംഗിയും പാർലമെന്റംഗം ദിലീപ് ഘോഷും രാഷ്ട്രപതിയെ അനുഗമിക്കുന്നുണ്ട് സന്ദർശനത്തിനിടെ ബെനിൻ പ്രസിഡന്റ് പാട്രീസ് ടായൂണുമായി രാഷ്ട്രപതി നാളെ കൂടിക്കാഴ്ച നടത്തും

മനുഷ്യകടത്ത് ചെറുക്കുകയു്കും ഇതിന് ഇരയായവരെ കണ്ടെത്തി രക്ഷിക്കുകയും ചെയ്യാൻ ഏവരും തയ്യാറാവണമെന്നും ശ്രീ നായിഡു പറഞ്ഞു

ജയ്പാൽ റെഡ്നിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സി

അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ തെലങ്കാന ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രിമാരും അനുശോചനം അറിയിച്ചു കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ജയ്പാൽ റെഡ്ഡി ഇന്നലെ രാത്രി ഹൈദരാബാദിലാണ് അന്തരിച്ചത്

മേഘാലയയുടെ പുരോഗതിയിൽ ഏറെ പങ്കുവഹിച്ച ആളാണ് ഡോ

തെലങ്കാനയിൽ സംയോജിത ശിശു വികസന പദ്ധതിയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ തെലങ്കാന സംസ്ഥാനത്ത് വനിതകളുടെയും ശിശുക്കളുടെയും ക്ഷേമത്തിനായ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളിൽ അവർ സംതൃപ്തി പ്രകടിപ്പിച്ചു

സി മേരികോമിന്

ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സെപ്തംബർ ഏഴിന് തുടങ്ങും

ഇത്തരക്കാർ തീവ്രവാദത്തിലേക്ക് വീണ്ടും തിരിച്ചുപോവില്ലെന്ന് ഉറപ്പാക്കാനാണ് നടപ്പൂടി സംസ്ഥാന പോലീസ് മേധാവി സമർപ്പിച്ച പുനരധിവുള്ളൂർ പദ്ധതി ഗവൺമെന്റ് അംഗീകരിച്ച് ഉത്തരവ് പുർപ്പെടുവിച്ചു

മറ്റുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കാനേഷൂമാരി ആരംഭിക്കും